പാകിസ്ഥാനിലെ അന്താരാഷ്ട്രിട്ട് അതിർത്തി വരെ നീളുന്ന കർത്താപൂർ ഇടനാഴിക്ക് ഉപ്പരാഷ്ട്രപതി എം

മുംബൈ ഭീകരാക്രമണത്തിന്റെ പത്താം വാർഷികമായ ഇന്ന് രക്തസാക്ഷികൾക്ക് രാഷ്ട്രത്തിന്റെ ശ്രദ്ധാജ്ഞലി

മധ്യപ്രദേശ് മിസോറാം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസൃ പ്രചാരണം അവസാനിച്ചു രാജസ്ഥാനിലും തെലങ്കാനയിലും പ്രചാരണം ഊർജ്ജിതം

ഇന്ത്യയുടെ ചരിത്രത്തിൽ പുതിയ യുഗം കുറിച്ച് ഭരണഘടന നിലവിൽ വസ്ത്ര ദിനമാണിത് വാക്കു കൊണ്ടും പ്രവൃത്തി കൊണ്ടും കൂടുത്രൽ ശക്തിയും അധികാരവും ജനങ്ങൾക്ക് നൽകുന്നത് ഭരണഘടനയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു ഇന്ത്യാക്കാർക്ക് ഭരണഘടന പ്രചോദനമേകുന്ന നിലവിലുള്ള ശക്തമായ ഒരു പ്രമാണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭരണഘടന പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടേയും ഭൂരിപക്ഷത്തിന്റേയും ശബ്ദമാണെന്നും ആപത്ഘട്ടങ്ങളിൽ ഒരു വഴി കാട്ടിയാണെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ് പറഞ്ഞു മത ജാതി സാമൂഹിക സാമ്പത്തിക പരിഗണന കൂടാതെ ജനാധിപത്യ പ്രക്രിയകളിൽ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ വിശ്വാമർപ്പിച്ചിട്ടുള്ളതാണ് ഭരണഘടനയെന്നും നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു

ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ മഹത്തായ സംഭാവനകൾ നൽകിയ മഹത് വ്യക്തികളെ രാഷ്ട്രം ആദരപൂർവ്വം ഓർക്കുന്നതായി ശ്രീ മോദി ടിറ്ററിലൂടെ അറിയിച്ചു ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്നലെ ആകാശവാണിയിലൂടെ നടത്തിയ മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ഭരണഘടനാ ദിനം സംബന്ധിച്ച് പരാമർശം നടത്തിയിരുന്നു

വെങ്കയ്യനായിഡു ഇന്ന് തറക്കല്ലിട്ടു പാകിസ്ഥാനിലെ അന്താരാഷ്ട്ര അതിർത്തി വരെ നീളുന്ന പാതയ്ക്ക് പഞ്ചാബിൽ ഗുർദാസ്പൂർ ജില്ലയിലെ മൻ ഗ്രാമത്തിലാണ് ഉപരാഷ്ട്രപതി തറക്കല്ലിട്ടത്

ജനങ്ങളുടെ ദീർഘനാളായുള്ള സ്വപ്നമായിരുന്നു ഈ ഇടനാഴിയെന്നും അതിന്റെ തുടക്കം കുറിക്കുന്ന ഈ ദിനം ചരിത്രപരമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ജനങ്ങൾക്കിടയിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകാൻ പാത ഉപകരിക്കുമെന്ന് പഞ്ചാബിൽ അടുത്തിടെ ഉണ്ടായ ആക്രമണങ്ങളെ പരാമർശിച്ച് ഉപരാഷ്ട്രപതി പറഞ്ഞു ഭീകരവാദം മനുഷ്യത്തിന് എതിരാണെന്നും അതിന് മതമില്ലെന്നും ചിലർ ഈ മേഖലയിൽ ഭീകരത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും ശ്രീ വെങ്കയ്യ നായിഡു പറഞ്ഞു ഗുരുനാനാക്കിന്റെ ജന്മദേശമായ സുൽത്താൻപൂർ ലോദി പൈതൃക നഗരമാക്കുമെന്ന് ഉപരാഷ്ട്രപതി പ്രഖ്യാപിച്ചു ലോധി സുൽത്താൻ പൂരിനെ സ്മാർട്ട് സിറ്റിയായി വികസിപ്പിക്കുമെന്നും ഗുരുനാനാക്കിന്റെ ചരിത്രമുറങ്ങുന്ന ഈ പട്ടണത്തിന് പിൻ ദ് ബാബെ നാനാക്ക് എന്ന് നാമകരണം ചെയ്യുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

ദക്ഷിണ മുംബൈയിലെ പോലീസ്റ്റ് ജീർഖാന രക്തസാക്ഷി മണ്ഡപത്തിൽ മഹാരാഷ്ട്ര ഗ്വീർണർ സി

ചടങ്ങിൽ വീരമൃത്യു വരിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കൾ സന്നിഹിതരായിരുന്നു ഭീകരവിരുദ്ധ സ്കാഡ് മേധാവി ഹേമന്ത് കാർക്കരെ കരസേന മേജർ സന്ദീപ് ഉണ്ണിക്കൃഷ്ണൻ തുടങ്ങിയവരുടെ സ്മരണയിൽ പട്ടണത്തിലുടനീളം സ്മൃതി മണ്ഡപങ്ങൾ സ്ഥാപിച്ചിരുന്നു കുടുംബാംഗങ്ങളും പൌരാവലിയും സ്മൃതി മണ്ഡപങ്ങളിൽ പുഷ്പാജ്ഞലി അർപ്പിച്ചു

ഭീകരവാദം ചെറുത്തു തോൽപിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനും ഇന്ത്യ മാന്യമായി നിലകൊള്ളുമെന്ന് രാഷ്ട്രപതി ടിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു ധീരന്മാരുടെ ജീവത്യാഗങ്ങൾ വിഫലമാകില്ലെന്നും വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീഷണിക്കെത്തിരെ ലോക സമൂഹം ഒരുമിക്കുകയാണെന്നും ഉപരാഷ്ട്രപൂതി പ്പറഞ്ഞു ആക്രമണത്തെ ധീരമായി നേരിട്ട സുരക്ഷാ സേന്റ്യ്ക്കു് മുമ്പിൽ രാഷ്ട്രം നന്ദിയോടെ തലകുനിക്കുകയാണ്ണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

മുബൈ ്ലീക്ട്രാക്രമണത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻ റാത്തോഡും ശ്രദ്ധാജ്ഞലി അർപ്പിച്ചു

ലഷ്കർ ഇ തോയ്ബയും അതിന്റെ പോഷക സംഘടനകളും ഉൾപ്പെടെ മുംബൈ ആക്രമണത്തിന് ക്യൂർണ്ണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയോടുള്ള കടപ്പാട് നിറപ്പേറ്റൺമെന്ന് മൈക് ഹേംപിയോ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു മുംബൈ ആക്രമണം ആ്സുത്രിതമായിരുന്നുവെന്നും അത് ആസൂത്രണം ചെയ്തത്തൂം നടപ്പിലാക്കിയതും പാകിസ്ഥാൻ മണ്ണിൽ നിന്നും ആയിരുന്നുവെന്ന് വിദേശകാരൃ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ആക്രമണത്തിന് ഇരയായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു

വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇരു സംസ്ഥാനങ്ങളും ചൂടേറിയ പ്രചാരണത്തിനാണ് സാക്ഷ്യം വഹിച്ചത്

ജെ

കോൺഗ്രസ് എന്നീ പാർട്ടികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളിലെ ഉന്നത നേതാക്കൾ പ്രചാരണത്തിന് നേതൃത്വം നൽകി

്യൂഅത്ത്സമയം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു

വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള റീജണൽ ഔട്ട് റീച്ച് ബ്യൂറോയാണ് ഹൈദരാബാദിൽ പ്രദർശനം സംഘടിപ്പിച്ചത് വോട്ടെടുപ്പ് ഒരു ശതമാനമെങ്കിലും ഉയർത്തണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

സുഖ്മ ജില്ലയിലെ കിസ്താറാം മേഖലയിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ ജില്ലാ സുരക്ഷാ സേനയെ മാവോവാദികൾ ആക്രമിക്കുകയായിരുന്നു സേനയുടെ പ്രത്യാക്രമണത്തിനിടെയാണ് മാവോവാദികൾക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ജീവഹാനി ഉണ്ടായത്

വിദേശകാര്യ മന്ത്രി സുഷമ സ്യർാജ് മാലിദ്വീപ് വിദേശ മന്ത്രി അബ്ദുള്ള ഷാഹീദുമായി ഇ്ന് ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉഭ്യിക്ക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്തത് ഇരു രാജ്യങ്ങളും സ്ക്കാർദ്ദപരമായ ബന്ധം വളർത്തുന്നതിൽ നടത്തുന്ന സുചിന്തിതമായ ചുവടുവയ്പ്പാണ് മന്ത്രി തല ചർച്ചയെന്ന് വിദേശകാര്യവക്താവ് രവീഷ്കുമാർ പറഞ്ഞു

തമിഴ്നാട്ടിലെ രാമനാഥപുരം തിരുനെൽവേലി ജില്ലകളിൽ നിന്നുള്ള മീൻപിടുത്തക്കാരായ ഇവരെ ഇറാൻ ഇന്നലെയാണ് മോചിപ്പിച്ചത് കഴിഞ്ഞ സെപ്തംബർ ഒന്നാം തീയതിയാണ് അറബിയായ തൊഴിലുടമ ഉൾപ്പെടെവരെ ഇറാൻ തീരസംരക്ഷണ സേന കസ്റ്റഡിയിലെടുത്തത്

ദുരന്തങ്ങൾക്ക് മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് എന്നതാണ് ഇക്കൊല്ലത്തെ സ്ഥാപക ദിന സന്ദേശം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വൃക്തികൾ സ്ഥാപനങ്ങൾ മുതലായവ തങ്ങളുടെ പങ്കിനെക്കുറിച്ചും നേരിടേണ്ടി വരുന്ന വ്യെല്ലുവിളികളെക്കുറിച്ചും ദിനാചരണത്തിന്റെ ഭാഗമായി ചർച്ച ക്ഷിയ്ക്ക്

കേന്ദ്ര വാർത്താ വിതരണ സഹമന്ത്രി കേണൽ രാജ്യ വർദ്ധൻ റാത്തോർ ട്വിറ്ററിൽ കുറിച്ചതാണീ വിവരം

അഗ്നിബാധിത പ്രദേശം മുഴുവനും വളഞ്ഞ് അഗ്നി രക്ഷാപ്രവർത്തകർ ആഴ്ചകളോളം നടത്തിയ ശ്രമങ്ങളും മഴയുമാണ് തീ കെട്ടടങ്ങാൻ ഇടയാക്കിയതെന്ന് കാലിഫോർണയയിലെ വനം അഗ്നിശമനാ വകുപ്പുകൾ പറഞ്ഞു

സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ നാളെ സഭാംഗമായിരുന്ന പി ബി അബ്ദുൾ റസാക്കിന്റെ നിര്യാണത്തിൽ ചരമോപചാഴ്രം അർപ്പിച്ച് സഭ പിരിയും